പാർട്ട് ടൈം തൊഴിലിന് വിദ്യാർത്ഥികൾക്ക് ഓണറേറിയം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്

മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളുമായി സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ വോയ്സ് ദുദ പഠനത്തോടൊപ്പം തൊഴിൽ പദ്ധതിയുടെ നോഡൽ വകുപ്പായി തൊഴിലും നൈപുണ്യവും വകുപ്പിനെ ചുമതലപ്പെടുത്തി

കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മഴമറ പദ്ധതി നടപ്പാക്കും

പൊലീസ് വകുപ്പിന്റെ പർച്ചേസുകൾക്കും സേവന കരാറുകൾക്കും പ്രത്യേകം മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു

കുമരകം വില്ലേജിലെ മെത്രാൻ കായൽ പാടശേഖരത്തിൽ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ റക്കിന്റോ കുമരകം റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് അനുമതി നൽകി കഴിഞ്ഞ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് മന്ത്രിസഭ റദ്ദാക്കി കേരള പുനർനിർമ്മാണ പരിപാടിയുടെ ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്ത പദ്ധതികൾ ലോകബാങ്കിന്റെ വികസന വായ്പയിൽ നിന്ന് തുക കണ്ടെത്തി നടപ്പാക്കുന്നതിന് അംഗീകാരം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു

എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും യാത്രക്കാരെ പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി

മിശ്രയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രാലയ യോഗം തീരുമാനിച്ചു വിദേശത്ത് പോയിവരുന്ന യാത്രക്കാരും വിനോദ സഞ്ചാരികളും സന്ദർശിച്ച സ്ഥലങ്ങൾ നിർബന്ധമായും ഡിക്ലറേഷൻ ഫോമുകളിൽ പൂരിപ്പിച്ചുനൽകണം വരുംദിവസങ്ങളിൽ കോൺഫറൻസുകളും അന്താരാഷ്ട്ര സമ്മേളനങ്ങളും സംഘടിപ്പിക്കും മുമ്പ് എല്ലാ ഗവൺമെന്റ് വകുപ്പുകളും ആരോഗ്യ വകുപ്പിന്റെ അനുമതി തേടണമെന്ന് യോഗം തീരുമാനിച്ചു

വിദ്യാർത്ഥികൾക്കിടയിൽ കൊറോണ വൈറസിനെകുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വിദ്യാലയങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് മാനവശേഷി വികസന മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ദേഴ അതിനിടെ സൌദി അറേബ്യ ഉംറ തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചു

ദേദ രാജ്യത്ത് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി തൃശൂർ ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു

ദർ ജില്ലാ ജഡ്ജിയെയും മൂന്ന് അഭിഭാഷകരേയും ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിമാരായി നിയമിച്ചു കോഴിക്കോട് ജില്ലാ സെഷൻസ് ജഡ്ജി എം ആർ അനിത അഭിഭാഷകരായ ടി

രവി ബെച്ചുകുര്യൻ തോമസ് പി ഗോപിനാഥ മേനോൻ എന്നിവരാണ് പുതിയ അഡീഷണൽ ജഡ്ജിമാർ ദേദ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ തലസ്ഥാന നഗരി ആറു മണിക്കൂർ സ്തംഭിച്ചിട്ടും ഗവൺമെന്റ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

രദേശ കൊല്ലം ഇളവൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആറ് വയസ്സുകാരി ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി ഇളവൂരിലെ വീട്ടിലും ഇത്തിക്കരയാറിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശോധന നടത്തിയ സംഘം മൃതദേഹം കണ്ടെടുത്തപ്പോൾ പോലീസ് പകർത്തിയ ദൃശ്യങ്ങളും പരിശോധിച്ചു രദേശ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും

വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇതുവരെ ഫൈനൽ കാണാത്ത ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ തോൽപിക്കാനും കഴിഞ്ഞിട്ടില്ല

വനിതാ ദിനത്തിൽ ഞായറാഴ്ച മെൽബണിലാണ് ഫൈനൽ

സെമിയിൽ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയെയും ഐ ഒ ബി ചെന്നൈ ഒ എൻ ജി സിയെയും പരാജയപ്പെടുത്തി ഫൈനൽ ഇന്ന് വൈകീട്ട് നടക്കും ഒഴ ഹരിയാനയിലെ പഞ്ചകുലയിൽ നടക്കുന്ന ആൾ ഇന്ത്യ പൊലീസ് അത് ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ കേരളാ പൊലീസിന് ഒരു സ്വർണ്ണം ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ കൂടി ലഭിച്ചു ഹൈജമ്പിൽ മനു ഫ്രാൻസിസാണ് സ്വർണം നേടിയത്

കാർഷിക ഗവേഷണ രംഗത്ത് ശക്തമായി ഇടപെടുന്ന ഡോക്ടർ വനജയെകുറിച്ച് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

ദേദ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഉന്മൂലനം ചെയ്യണമെന്ന് മന്ത്രി കെ

ചൊവ്വാദോഷമെന്ന പേരിൽ നിരവധി സ്ത്രീകളെ ചൂഴ്ന്നു നിൽക്കുന്ന അനാചാരങ്ങൾ തെറ്റാണെന്ന ബോധ്യമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു വനിതാ വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗാർഹിക പീഡന നിരോധന നിയമം പൂർണമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു രുമ സുരക്ഷിതവും രോഗമുക്തവുമായ തൊഴിലിടങ്ങൾ ഓരോ തൊഴിലാളിയുടെയും അവകാശമാണെന്ന് മന്ത്രി ടി

തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും വ്യവസായശാലകൾക്കു ചുറ്റും അധിവസിക്കുന്ന ജനങ്ങൾക്കും സുരക്ഷിതത്വം ഒരേപോലെ ബാധകമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ദേശീയ സുരക്ഷിതത്വ ദിനത്തോടനുബന്ധിച്ച് ഫാക്ടറീസ് ആന്റ് ബോയ്ലേഴ്സ് വകുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാന വ്യവസായ സുരക്ഷിതത്വ അവാർഡുകൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു മന്ത്രി രദേശ കണ്ണൂർ ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഒന്നാംഘട്ട സജ്ജീകരണം ആറു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു

സുബ്രഹ്മണ്യം അർഹനായി രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രദേശ രാജ്യത്ത് ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ പഠനവിധേയമാക്കി സമഗ്ര സ്ഥലപര ഭൌമ വിവരശേഖരണ റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രഥമ ബ്ലോക്ക് പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് മാറി ഭൌമസ്ഥലപര വിവരശേഖരണ റിപ്പോർട്ട് മന്ത്രി എ